ആവശ്യമായ മുന്നറിയിപ്പുകൾ നൽകിയാണ് അണക്കെട്ടുകൾ തുറന്നതെന്നും മുഖ്യമന്ത്രി വൃക്തമാ ക്കി

മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നാല് ജില്ലകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കും പ്രളയ പ്രദേശങ്ങളിൽ പകർച്ച വ്യാധി നിയന്ത്രണത്തിന് ഊന്നൽ നൽകുമെന്ന് മന്ത്രി കെ

ജക്കാർത്ത ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് ഒരു സ്വർണ്ണംകൂടി

കുറഞ്ഞ സമയംകൊണ്ട് കൂടു തൽ വെള്ളം നിറക്കുന്ന ശക്തമായ മഴയാണ് പ്രളയമുണ്ടാ ക്കിയത്

ഡാമുകൾ തുറന്നുവിട്ടതുകൊണ്ടാണ് സംസ്ഥാനത്ത് വെള്ളപ്പൊക്കമു ണ്ടായതെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു മുഖൃമന്ത്രി വിമർശനങ്ങളെ നേരിടാൻ ഗവൺമെന്റിന് വിഷമമില്ലെന്നും എന്നാൽ കഴമ്പില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു അണക്കെട്ടുകൾ തുറക്കുന്നത് സംബന്ധിച്ച് ഗവൺമെന്റ് ആവശ്യമായ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു

കാലടി പെരുമ്പാവൂർ ആലുവ പ്രദേശങ്ങളിലെ വെള്ള പ്പൊക്കത്തിന് കാരണം ഇടുക്കിയിലെയും ഇടമലയാറിലെയും വെള്ളം മാത്രമല്ലെന്നും മഴയിൽനിന്നുണ്ടായ വെള്ളം നദി യിലേക്ക് കുത്തിയൊലിച്ചതും ജലനിരപ്പ് ഉയരാൻ ഇടയാ ക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു

വയനാട്ടിലെ ബാണാസുര സാഗർ അണക്കെട്ട് മുന്നറിയി പ്പില്ലാതെ തുറക്കാവുന്ന ഡാമുകളിലൊന്നാണ് ഒരിക്കലും മുന്നറിയിപ്പ് നൽകിയല്ല അത് തുറക്കാറെന്നും മുഖ്യമന്ത്രി അറി യിച്ചു കേരളത്തിലെ പ്രളയക്കെടുതി നേരിട്ടാൻ വിദേശ സഹായം സ്വീകരിക്കില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്ത മാക്കി ഇപ്പോഴത്തെ നയമനുസരിച്ച് അത്തരം സംഭാവന കൾ വാങ്ങാനാവില്ലെന്ന് മന്ത്രാലയ വക്താവ് രവീഷ് കുമാർ ന്യൂഡൽഹിയിൽ അറിയിച്ചു ആഭ്യന്തരമായിത്തന്നെ രക്ഷാ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് തുക കണ്ടെത്തണം അതേസമയം പ്രധാനമന്ത്രിയുടേയോ മുഖ്യമന്ത്രിയുടേയോ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ സ്വീകരിക്കാ വുന്നതാണ് പ്രവാസി ഇന്ത്യക്കാരനിൽനിന്നും ഇന്ത്യൻ വംശജരിൽനിന്നും രാജ്യാന്തര സ്ഥാപനങ്ങളിൽനിന്നും ലഭി ക്കുന്ന സഹായങ്ങൾ അദ്ദേഹം സ്വാഗതം ചെയ്തു

എ

മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നാല് ജില്ലകളിലെ ദുരി താശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കും

കോള്ജിലെ ക്യാമ്പ് കണ്ടശേഷം പത്തനംതിട്ട കോഴ ഞ്ചേരി എം

എം ഓഡിറ്റോറിയത്തിലെ കൃാമ്പിലേക്ക് അദ്ദേഹം പോകും എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂർ ഗ്രിഗോറിയസ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പും മുഖ്യമന്ത്രി സന്ദർശി ക്കുന്നുണ്ട് തുടർന്ന് അദ്ദേഹം ചാലക്കുടിയില്ലേക്ക് പോകും

ആലപ്പുഴ ജില്ലയിൽനിന്ന് കൊണ്ടുവന്നവർക്കായി മാത്രം ആറ് ക്യാമ്പുകളാണ് കൊല്ലത്ത് പ്രവർത്തിക്കുന്നത്

മന്ത്രി മാത്യു

തോമസ് ഇന്നലെ അപ്പർ കുട്ടനാട് മേഖലയിലെ ക്യാമ്പ് സന്ദർശിച്ചു വെള്ളപ്പൊക്കത്തിൽ തകരാറിലായ വൈദ്യുതി വിതരണം പത്തുദിവസത്തിനകം പുനഃസ്ഥാപിക്കുമെന്ന് കെ എസ് ഇ ബി അറിയിച്ചു

അതേസമയം ജലനിരപ്പ് കുറഞ്ഞിട്ടും കുട്ട നാട്ടിലെ വീടുകൾ വെള്ളത്തിൽ തന്നെയാണ് കണ്ണൂർ ജില്ലയിലെ കാലവർഷ നാശനഷ്ടങ്ങൾ അവലോ കനം ചെയ്യാൻ ഇന്ന് മന്ത്രി കെ

ശൈലജയുടെ അധ്യക്ഷ തയിൽ ഉച്ചകഴിഞ്ഞ് ജില്ലാ ആസൂത്രണ സ്മിതി ഹാളിൽ യോഗം ചേരും

പ്രളയബാധിത പ്രദേശങ്ങളിൽ പകർച്ചവ്യാധി നിയന്ത്രണ പ്രവർത്തനങ്ങൾക്ക് ഇനി കൂടുതൽ ഊന്നൽ നൽകണമെന്ന് മന്ത്രി കെ

ആരോഗ്യപ്രവർത്തക രുടെ ഉപദേശം അനുസരിച്ചായിരിക്കണം ജനങ്ങളുടെ പ്രവർത്തനമെന്നും അവർ പറഞ്ഞു കൊച്ചിയിൽ ആരോഗ്യ വകുപ്പ് ജില്ലാതല ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരി ക്കുകയായിരുന്നു മന്ത്രി ദുരിതാശ്ചാസ ക്യാമ്പുകളുടെ നട ട ത്തിപ്പിന് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ നടത്തിപ്പ് കമ്മിറ്റികൾ രൂപീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു പ്രളയ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളം ജി

ടി കൌൺസിലിന്റെ സഹായം തേടുമെന്ന് മന്ത്രി ഡോ

ടൂറിസം കൃഷി വ്യവ സായ മേഖലയിലുണ്ടായ തകർച്ച നേരിടാൻ ഇത് ആവശ്യ മാണെന്ന് മന്ത്രി പറഞ്ഞു ദുരിതാശ്ചാസ ക്യാമ്പുകൾ വിടു ന്നവർക്ക് ഓണക്കിറ്റ് നൽകും വീടുകൾ വൃത്തിയാക്കുന്ന തിനാണ് മുഖ്യ പരിഗണന നൽകുന്നതെന്നും മന്ത്രി അറിയി ച്ചു കോഴിക്കോട് ജില്ലയിലെ മഴക്കെടുതി ദുരിതാശ്ചാസ പ്രവർത്ത നങ്ങൾ ഇന്ന് രാവിലെ മന്ത്രി ടി പി രാമകൃഷ്ണൻ അവലോ കനം ചെയ്യും ഉച്ചകഴിഞ്ഞ് സർവ്വകക്ഷിയോഗവും ചേരുന്നു ണ്ട് പൊതുമരാമത്ത് ജലസേചനം വൈദ്യുതി ബി എസ് എൻ എൽ ഉദ്യോഗസ്ഥരുമായും മന്ത്രി ചർച്ച നടത്തും ഇന്നലെ മന്ത്രിമാരായ ടി പി രാമകൃഷ്ണനും എ

ശശീന്ദ്രനും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ജില്ലയിലെ സാഹചര്യം വിലയിരുത്തി കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ ഇന്ന് മെഗാ ശുചീ കരണ പരിപാടി നടത്തും

പാലക്കാട് നെല്ലിയാമ്പതിയിലെ തകർന്ന കുണ്ട്ര പാല ത്തിന് പകരം താൽക്കാലിക പാലം പൂർത്തിയായി അത്യാ വശൃഘട്ടങ്ങളിൽ അവശൃസാധനങ്ങളുമായി ചെറിയ വാഹ നങ്ങൾക്ക് കടന്നുപോകാവുന്ന വിധമാണ് താൽക്കാലിക പാലം നിർമ്മിച്ചിരിക്കുന്നത് വലിയ വാഹനങ്ങളേയും വിനോദ സഞ്ചാരികളേയും താൽക്കാലിക പ്പാലം വഴി കട ത്തിവിടില്ല കാലാവസ്ഥ മോശമായതിനത്തുടർന്ന് ഇന്ന ലെയും നെല്ലിയാമ്പതിയിലേക്ക് ഹെലികോപ്ടർ സേവനം ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല പാലക്കാട് ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് കൂടുതൽ പേർ വീടുകളിലേക്ക് മടങ്ങി

ഇടുക്കി ജില്ലയിലെ ദുരിതാശ്ചാസ പ്രവർത്തനങ്ങളും തുടർ നടപടികളും അവലോകനം ചെയ്യുന്നതിന് ഇന്ന് ഉച്ചയ്ക്ക് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ മന്ത്രി എം എം മണി യുടെ അധ്യക്ഷതയിൽ യോഗം ചേരും ഇടുക്കി ജില്ലയിലെ ദുരിത ബാധിത മേഖലകൾ ചീഫ് സെക്രട്ടറി ടോം ജോസിന്റെ നേതൃത്വത്തിൽ ഉന്നതതല സംഘം സന്ദർശിച്ചു രാവിലെ തൊടുപുഴയിലെത്തിയ സംഘം അവിടെനിന്ന് ഹെലികോപ്ടറിൽ ദുരന്ത സ്ഥലങ്ങ ളുടെയും തകർന്ന റോഡുകളുടെയും ആകാശ വീക്ഷണം നടത്തി ഉരുൾപൊട്ടിയ സ്ഥലവും ഇടുക്കി ന്യൂമാൻസ് സ്കൂളിലെ ദുരിതാശ്ചാസ ക്യാമ്പും ഇടുക്കി ഡാമും തകർന്ന ചെറുതോണി ബസ് സ്റ്റാന്റും പരിസരവും സംഘം സന്ദർശി ച്ചു

ഇടുക്കി ഡാമിലേക്കും നീരൊഴുക്ക് കുറഞ്ഞു

മൂഴിയാർ ഡാമിന്റെ ഷട്ടറുകൾ ഇന്ന് തുറന്നേക്കുമെന്ന് പത്തനംതിട്ട ജില്ലാ കലക്ടർ അറിയിച്ചു

വെള്ളപ്പൊക്കത്തെത്തുടർന്ന് അടച്ച വിമാനത്താവളം ഞായറാഴ്ച പ്രവർത്തനമാരംഭിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്

പരീക്ഷാ തീയതി പിന്നീട് പ്രഖ്യാപിക്കും

ബി ഐ മുംബൈയിൽ അറിയിച്ചു രക്ഷാസേനയിലെ നിയമനങ്ങളിൽ മത്സ്യത്തൊഴിലാളി കൾക്ക് പ്രത്യേക പരിഗണന നൽകണമെന്ന് സി

ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ആലപ്പുഴയിൽ ആവശ്യപ്പെട്ടു വെള്ളപ്പൊക്കത്തിൽ രക്ഷാപ്രവർത്തനം നട ത്തിയ മത്സ്യത്തൊഴിലാളികൾക്ക് സി

ഐ ജില്ലാ കമ്മിറ്റി ഒരുക്കിയ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കാനം ഇടുക്കിയിൽ മലയിടിച്ചിലിലും ഉരുൾപൊട്ടലിലും തകർന്ന അടിമാലി രാജാക്കാട് റോഡിന്റെ പുനരുദ്ധാരണം പുരോഗമിക്കുന്നു റോഡുകൾക്ക് ഏറ്റവും കൂടുതൽ നാശ നഷ്ടം സംഭവിച്ച പന്നിയാർകുട്ടി കത്തിപ്പാറ മേഖലകളി ലാണ് റോഡുകളുടെ പുനർ നിർമ്മാണം നടക്കുന്നത്

ജക്കാർത്ത ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് ഒരു സ്വർണ്ണംകൂടി

വുഷുവിൽ നാല് വെങ്ക ലവും ഇന്നലെ ഇന്ത്യ സ്വന്തമാക്കി

ഓണത്തോടനുബന്ധിച്ച് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന് പാലിന്റെ ഗുണമേന്മ പരിശോധന പാലക്കാട് ജില്ലയിൽ ഊർജ്ജിതമാക്കി പാലക്കാട്ട് മീനാക്ഷിപുരത്തെ സ്ഥിരം പരിശോധനാ ലാബിന് പുറമെ വാളയാറിലും സിവിൽ സ്റ്റേഷനിലും പ്രത്യേക ലാബുകൾ തുടങ്ങി വിപ ണിയിലെ പാക്കറ്റ് പാലുകളുടെ സാമ്പിളുകളും ലാബുകളിൽ പരിശോധിക്കും